കേരളാ തീരത്ത് ഇന്ന് വേലിയേറ്റ സമയങ്ങളിൽ ശക്തമായ തിരമാലകൾക്ക് സാധൃതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്

ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും ൾ ൽ ൾ ആധാർ കേസിലെ സുപ്രീം കോടതി വിധി സ്വന്തം നിലപാടുകൾ ശരിവെക്കുന്നതാണെന്ന് ബിജെപിയും കോൺഗ്രസും അവകാശപ്പെട്ടു നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പാവപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാടിന്റെ വിജയമാണ് കോടതി വിധിയെന്ന് ബിജെപി അഭിപ്രായപ്പെട്ടു ആധാറിനെ തുടക്കം മുതൽ ചെറുത്തുതോൽപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയായി രുന്നുവെന്ന് കോടതി വിധിയോട് പ്രതികരിച്ച ബിജെപി അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞു

എൻഡിഎ ഗവൺമെന്റിന് ലഭിച്ച കനത്ത പ്രഹരമാണ് ആധാർ കേസിലെ സുപ്രീം കോടതി വിധിയെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു ജനങ്ങളെ ശാക്തീകരിക്കുന്ന ഉപകരണമായാണ് കോൺഗ്രസ് എന്നും ആധാറിനെ കണ്ടതെന്ന് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ പറഞ്ഞു ബിജെപി പൌരൻമാരെ രഹസ്യമായി നിരീക്ഷിക്കാനും അവരെ അടിച്ചമർത്താനും ആധാറിനെ ദുരുപയോഗം ചെയ്തതായും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി കേരള തീരത്ത് ഇന്ന് വേലിയേറ്റ സമയങ്ങളിൽ ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് മുന്നറിയിപ്പ് നൽകി രാവിലെയും വൈകീട്ടും ആറു മുതൽ എട്ടു വരെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ തീരമേഖലയിൽ ഇത്തരം തിരകൾക്ക് സാധ്യതയുണ്ട് തീരത്തോട് ചേർന്ന് മീൻ പിടിക്കുന്നവർ ജാഗ്രത പാലിക്കണം കടൽ തീരത്ത് എത്തുന്ന വിനോദ സഞ്ചാരികളും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട് ഈ സമയങ്ങളിൽ ബോട്ടുകളും വള്ളങ്ങളും കടലിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ആവശ്യപ്പെട്ടു കേന്ദ്ര കാലാവസ്ഥാവകുപ്പ് പത്തനംതിട്ട ജില്ലയിൽ ഇന്നും ഞായറാഴ്ച്ചയും ശക്തമായ മഴയുണ്ടാകുമെന്ന മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാനായ നടപടികൾക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി

പ്രളയ ബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു

പ്രകൃതി ദുരന്ത നാശനഷ്ടങ്ങളും മരണവും മറ്റ് അപകടങ്ങളും സംഘം വിലയിരുത്തി ചെറുതോണി പാലം ഗാന്ധിനഗർ കോളനി എന്നിവിടങ്ങൾ അവർ സന്ദർശിച്ചു ടെലികോം സേവനദാതാക്കൾ ഉപഭോക്താക്കളുടെ സംതൃപ്തിക്ക് ഏറ്റവും ഉയർന്ന പ്രാധാനൃം നൽകണമെന്ന് പ്രപ്ധാനമന്ത്രി നരേന്ദ്രമോദി നിർദേശിച്ചു ഉപഭോക്താക്കളുടെ പരാതികൾക്ക് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഈ മേഖലയിലെ പരാതികളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രഗതി പ്രിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും ഉയർന്ന പരിസ്ഥിതി അവാർഡിന് അർഹനായി

ഇക്കാരൃം വിപുലമായ ബഞ്ചിന് കൈമാറണമെന്ന് മുസ്ലീം സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിലെ പ്രമുഖ ടൂറിസം മേളയായ കേരളാ ട്രാവൽ മാർട്ട് ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

നാളെ മുതൽ മൂന്ന് ദിവസം വില്ലിംഗ്ടൺ ഐലൻഡിലെ കൺവെൻഷൻ സെന്ററുകളിൽ ബയർ സെല്ലർ കൂടിക്കാഴ്ച്ചുകളും പ്രദർശനങ്ങളും നടക്കും

കെപിസിസി പ്രസിഡന്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് ചുമതലയേൽക്കും

ഇപ്പോഴത്തെ അധ്യക്ഷൻ എം

ഹസ്സനിൽ നിന്ന് അദ്ദേഹം അധികാരമേറ്റെടുക്കും വർക്കിംഗ് പ്രസിഡന്റുമാരായി കെ സുധാകരൻ എം

ഷാനവാസ് കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും യുഡിഎഫ് കൺവീനറായി ബെന്നിം ബഹനാനും കെപിസിസി പ്രചാരണ വിഭാഗം ചെയർമാനായി കെ

ബിജെപി സംസ്ഥാന കൌൺസിൽ യോഗം കൊച്ചിയിൽ തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സംസ്ഥാന കൌൺസിൽ കൈക്കൊള്ളും ഇന്ന് എറണാകുളം ശിവക്ഷേത്ര മൈതാനിയിൽ നിയോജകമണ്ഡല ഭാരവാഹികൾ മുതൽ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന സമ്പൂർണ്ണ യോഗം രാവിലെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ്ങ് ഉദ്ഘാടനം ചെയ്യും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി മുരളീധ്ര റാവു അടക്കം നേതാക്കൾ പങ്കെടുക്കും കന്യാസ്ത്രീ ്രപീഡനക്കേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഇക്കാരൃത്തിൽ ഗവൺമെന്റ് നിലപാട് കോടതിയെ അറിയിക്കും കന്യാസ്ത്രീക്കെതിരായ പരാതിയിൽ നടപടിയെടുത്തിന്റെ വൈരാഗൃമാണ് പരാതി നൽകാൻ കാരണമായതെന്നാണ് ബിഷപ്പിന്റെ വാദം ആറൻമുളയിൽ പൈതൃക സർവകലാശാല എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പൈതൃക ഇൻസ്റ്റിറ്റ്യൂട്ട് നാളെ ഉദ്ഘാടനം ചെയ്യും മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംസ്ഥാനത്ത് പുതിയ മദ്യ നിർമ്മാണ ശാലകൾ അനുവദിച്ചതിന് പിന്നിലെ അഴിമതി അന്വേഷിക്കണമെന്ന് മുസ്ലീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി

കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ആവശ്യപ്പെട്ടു

ജന്മഭൂമി ദിനപത്രത്തിന്റെ കൊല്ലം എഡീഷൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ്ങ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് മൂന്നിന് കൊല്ലം റാവിസ് ഹോട്ടലിലാണ് ഉദ്ഘാടന ചടങ്ങ് ദുബായിൽ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും

സൂപ്പർ ഫോറിൽ പാക്കിസ്ഥാനെയും ബംഗ്ലാദേശിനെയും തോൽപ്പിച്ച ഇന്ത്യ നേരത്തെ ഫൈനലിൽ കടന്നിരുന്നു ഭുവനേശ്വറിൽ ദേശീയ ഓപ്പൺ അത്ലറ്റിക് മീറ്റിന്റെ രണ്ടാം ദിനം മലയാളി താരങ്ങളായ പി

ചിത്രയ്ക്കും വി നീനയ്ക്കും സ്വർണം

ആർട്ടിസ്റ്റിക് റിഥമിക് ഇനങ്ങൾ ഉൾപ്പടെ ആറിനങ്ങളിലാണ് മത്സരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും

ഐഎസ്എൽ അഞ്ചാം സീസണിനു മുന്നോടിയായി കൊച്ചിയിൽ ഔദ്യോഗിക ജേഴ്സി പ്രകാശന ചടങ്ങിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മോഹൻലാലിനെ ഗുഡ്വിൽ അംബാസിഡറായി പ്രഖ്യാപിച്ചത് പായ്വഞ്ചി അപകടത്തിൽ സാരമായി പരിക്കേറ്റ കമാന്റർ അഭിലാഷ് ടോമിയെ ഇന്ന് തുടർ ചികിത്സക്കായി മൊറീഷൃസിലേക്ക് കൊണ്ടുപോയേക്കും നാവികസേനാ കപ്പൽ ഐഎൻഎസ് സത്പുര എത്തിയ ശേഷമായിരിക്കും അദ്ദേഹത്തെ ആംസ്റ്റർഡാമിൽ നിന്ന് മാറ്റുക വാഹനാപകടത്തിൽ പരിക്കേറ്റ വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ബാലഭാസ്ക്ക്റിന്റെ നില ഗുരുതരമായി തുടരുന്നു

അപകടത്തിൽ പരിക്കേറ്റ ഭാരൃ ലക്ഷ്മി ഗുരുതരാവസ്ഥ ത്രണം ചെയ്തു ദേശീയപാതയിൽ പള്ളിപ്പുറം സിആർപിഎഫ് ക്യാമ്പിനും താമരക്കുളത്തിനും ഇടയിൽ ചൊപ്പാഴ്ച്ച പുലർച്ചെയായിരുന്നു അപകടം

മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാന്നിധൃത്തിലായിരുന്നു കരാർ ഒപ്പിടൽ

കഴക്കൂട്ടം എരുമേലി ചെങ്ങന്നൂർ ചിറങ്ങര ശുകപുരം മണിയൻകോട് ക്ഷേത്ര പരിസരങ്ങളിലാണ് ഇടത്താവള സമുച്ചയങ്ങൾ സാമ്പത്തിക പ്രയാസം മൂലം ഒരു കർഷകനും കൃഷി ഉപേക്ഷിക്കേണ്ടി വരില്ലെന്ന് മന്ത്രി വി

സുനിൽകുമാർ ആലപ്പുഴയിൽ പറഞ്ഞു കുട്ടനാട്ടിൽ നെൽകൃഷിക്ക് ഗവൺമെന്റ് വിത്ത് സൌജന്യമായി നൽകും

നവേകരള നിർമാണപ്രവർത്തനങ്ങളിൽ അപസ്വരങ്ങൾ ഉയർത്തുന്നവരെ ജനങ്ങൾ അവഗണിക്കുമെന്നും ടിവി തോമസ് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച കുട്ടനാടിന്റെ ഭാവി ജനകീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യവെ കാനം പറഞ്ഞു മാവോയിസ്റ്റുകളെന്ന് സംശയിക്കുന്ന മൂന്ന് പേർ വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പതിച്ചു ഇന്നലെ പുലർച്ചയോടെ എത്തിയ മൂന്നംഗ സംഘം കോളേജിന്റെ വാച്ച്മാനെ ഭീഷണിപ്പെടുത്തിയ ശ്രേഷമാണ് പോസ്റ്റർ ഒട്ടിച്ചതെന്ന് പറയപ്പെടുന്നു

സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും അസഭ്യ ഭാഷാപ്രയോഗം സ്ത്രീകൾക്കെതിരായ ഹീനമായ ആക്രമണമാണെന്നും കമ്മീഷൻ അധ്യക്ഷ എം